ബംഗാളിലെ ഇന്നത്തെ റാലികൾ ക്ഴിയുമെങ്കിൽ തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുട്ടെ പ്രെല്ലൂവിളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം പുനഃപരിശോധിക്കാൻ സമയമായെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു ഹയർസെക്കൻറി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകാവുന്ന അവസാനദിവസം ഇന്ന് ജമ്മുകശ്മീരിൽ സുരക്ഷാസേന മൂന്ന് ഭീകരരെ വധിച്ചു ഒരു ജവാന് വീരമൃത്യു ഫ്രഞ്ച്ഓപ്പൺ ടെന്നീസ് ചാമ്പൃൻഷിപ്പിൽ നിന്ന് മരിയ ഷറപ്പോവ പിന്മാറി ലോക്സ്ഭാ തെരെഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്

ബിജെപി തൃണമൂൽകോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവനു സരിച്ച് ബംഗാളിൽ ഒൻപത് മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി പത്തിന് പ്രചാരണം തീരും

തമി ഴ്നാട്ടിലെ വെല്ലൂരിൽ വോട്ടിന് പണം കൈമാറിയെന്ന് കണ്ടെത്തി യതിനെ തുടർന്ന് വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കയാണ്

സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ലോക്സഭാമ ണ്ഡലത്തിലെ ഒരു നിയമസഭാമണ്ഡലത്തിൽ അഞ്ച് ബൂത്തുകളിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ ഒത്തുനോക്കേണ്ടതിനാൽ ഇത്തവണ ഫല പ്രഖ്യാപനം വൈകാനിടയുണ്ട്

ബംഗാളിൽ ഇന്ന് നടത്താനിരിക്കുന്ന് റാലി കഴിയുമെങ്കിൽ തട യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃണമൂൽ കോൺഗ്രസ് അടക്കം പാർട്ടികളെ വെല്ലുവിളിച്ചു കൊൽക്ക്ത്തയിൽ വിദ്യാസാഗറിന്റെ പ്രതിമ തകർത്തത് തൃണമൂൽ ഗുണ്ടകളാണെന്നും കേന്ദ്ര ഗവൺമെന്റ് പ്രതിമ പുനഃസ്ഥാ്പിക്കുമെന്നും അദ്ദേഹം ഉത്തർപ്ര ദേശിലെ തെരഞ്ഞെട്ടുപ്പ് റാലിയിൽ പറഞ്ഞു ബംഗാളിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രണ്ട് റാലികളുണ്ട് അതേസമയം കേന്ദ്രഗവൺമെന്റിന്റെ ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധതിരിക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാ രണം നേരത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബിഎസ്പി നേതാവ് മായാവതി കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെ ടുപ്പ് കമ്മീഷണറുടെ കീഴിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെര ഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനാവില്ലെന്ന് അവർ ലക്നൌവിൽ പറ ഞ്ഞു കേന്ദ്രസമ്മർദ്ദത്തെ തുടർന്നാണ് ഒരു ദിവസം നേരത്തെ തെര ഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം പുനഃപരിശോധിക്കേണ്ട സമയമായെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു

മത്സരിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഒരേ അവസരം ലഭ്യ മാക്കുന്ന ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നതിൽ കമ്മീ ഷൻ പരാജയപ്പെട്ടതായും സുർജേവാല പറഞ്ഞു കേന്ദ്രത്തിൽ ബിജെപി വീണ്ടും അധിക്കാര്ത്തിലെത്താനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കുമെന്ന് കോൺഗ്ര്സ് പ്രവർത്തക സമിതി അംഗം ഗുലാംനബി ആസാദ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് പാർട്ടി തയ്യാറാണെന്ന് അദ്ദേഹം പറ്റ് നയിൽ അറിയിച്ചു എൻഡിഎയും ബിജെപിയും കേന്ദ്രത്തിൽ അധി കാരത്തിൽ വരരുതെന്നും പ്രതിപക്ഷ കക്ഷികളുമായി ധാരണയു ണ്ടായാൽ കോൺഗ്രസ് അധിക്ാര്ത്തിൽ വരുമെന്നും ഗുലാംനബി ആസാദ് പറഞ്ഞു വെപ്പേറെയാണ് മത്സരിച്ചതെങ്കിലും വിധി വരും മുമ്പ് എല്ലാ മതേതരപാർട്ടികളെയും കോൺഗ്രസ് ഒന്നിച്ച് നിർത്തുമെന്നും അദ്ദേഹം അറിയിച്ചു രാജീവ്ഗാന്ധിക്കെതിരായ പ്രസ്താവനകളി ലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എല്ലാ രക്തസാക്ഷികളെയുമാണ് അവഹേളിച്ചതെന്നും ഗുലാംനബി ആരോപിച്ചു വയനാട്ടിൽ രാഹുൽഗാന്ധി നാല് ലക്ഷ ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അമേഠി യിൽ രാഹുൽ തോൽക്കുമെന്നത് അതിമോഹമാണെന്നും ഗുലാം നബി പറഞ്ഞു കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നു വെന്ന് കണ്ടെത്തിയ നാല് ബൂത്തുകളിൽ റീപോളിംഗ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുത്തേക്കും കല്യാ ശ്ശേരി തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലാണ് വീണ്ടും വോട്ടെടുപ്പിന് സാധ്യത ഈ ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്ന റിപ്പോർട്ട് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാ റാംമീണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു കാസർകോട്ടെ നാലു ബൂത്തുകളിൽ റീപോളിംഗ് നടത്തുന്ന തുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതു തീരുമാന ത്തോടും ഗവൺമെന്റ് യോജിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി യുഡിഎഫ് സ്ഥാനാർത്ഥിയും അറിയിച്ചു ഹയർ സെക്കൻഡറി പ്ലസ്വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകാവുന്ന അവസാനദിവസം ഇന്നാണ് പ്രൈകീട്ട് അഞ്ചുവരെ അപേക്ഷയും പ്രിന്റ് ഔട്ട് ഉൾപ്പെടെ അനുബ്ന്ധ് രേഖകളും സ്കൂളുകളിൽ വെരിഫിക്കേഷന് നൽകാം

കോഴിക്കോട് നീലേശ്വരം ഗ്ഗവ് ഹയർസെക്കന്ററി സ്കൂളിൽ വിദ്യാർഥികൾക്ക് വേണ്ടി അധ്യാപകൻ പരീക്ഷ എഴുതിയ സംഭവത്തിൽ ഉൾപ്പെട്ട അധ്യാപകർക്കായി പൊലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കി സൃംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ അധ്യാപകരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പൊലീസ് അതേസമയം അധ്യാപകൻ ഉത്തരകടലാസ് തിരുത്തിയ ഒരു വിദ്യാർഥിനിയുടെ പരീക്ഷാ ഫലംപ്രസിദ്ധീകരിച്ചു എല്ലാ വിഷയത്തിലും എ പ്തസ് നേടിയിട്ടുണ്ട് അധ്യാപകൻ തിരുത്തിയ ഭാഗം ഒഴിവാക്കിയാണ് മൂല്യനിർണയം നടത്തിയത് ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന മൂന്ന് ഭീകരരെ വധിച്ചു ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു രണ്ട് ജവാന്മാർക്കും നാട്ടുകാരനും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു ദാലി പോര പ്രദേശത്ത് ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് രാഷ്ട്രീയ റൈഫിൾസും സിആർപിഎഫും ജമ്മു കശ്മീർ പൊലീസിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പും സംയുക്തമായി പ്രദേശം വളഞ്ഞ് പരിശോധന നടത്തുന്നതിനിടെ പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്

മരിയഷറപ്പോവ ഈ വർഷത്തെ ഫ്രഞ്ച്ഓപ്പൺ ടെന്നീസ് ചാമ്പൃൻഷിപ്പിൽ നിന്ന് പിന്മാറി തോളെല്ലിനേറ്റ പരിക്ക് പൂർണ്ണ മായും ഭേദമാകാത്തിനെ തുടർന്നാണ് രണ്ട്തവണ ഫ്രഞ്ച്ഓ പ്പൺ ചാമ്പ്യനായ മരിയഷറപ്പോവ പിന്മാറിയത്

തോളെല്ലിന് ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് ഫിബ്ര വരി മുതൽ മുൻലോക ഒന്നാംനമ്പർ താരമായി മരിയഷറപ്പോവ കളിച്ചിരുന്നില്ല അഞ്ച്തവണ ഗ്രാന്റ് സ്താം നേടിയ് ഷറപ്പോവ കഴിഞ്ഞ വർഷം ഫ്രഞ്ച് ഓപ്പണിൽ ക്വാർട്ടർ ഫൈനലിലെത്തി യിരുന്നു

മീൻപിടുത്തത്തിനിടെ വള്ളത്തിൽ കുഴഞ്ഞുവീണ് ചികിത്സ യിലായ മത്സൃത്തൊഴിലാളി പാട്രിക് ഫെർണാണ്ടസിനെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു

സി പരീക്ഷയുടെ ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണ്യവും മാർക്ക് പരിശോധനയും നാളെ തുടങ്ങും

ഇന്ന് ദേശീയ ഡെങ്കി ദിനാചരണം

മരുതോങ്കര കുണ്ടുതോട് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിലെ ചെങ്ങോട്ട് മല ഖനനവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കലക്ട്രേറ്റിൽ ചർച്ച നടക്കും രാവിലെ നടക്കുന്ന ചർച്ചയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയപാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ട്രഷറിയെ ബാങ്കിംഗ് ട്രഷറിയാക്കി മാറ്റി ഗവൺമെന്റ് ഉത്തരവായി മട്ടന്നൂർ ട്രഷറിയുടെ സാമ്പത്തിക ഇടപാടുകൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധിപ്പിച്ചു കൊണ്ടാണ് ബാങ്കിംഗ് ട്രഷറിയായി പ്രവർത്തിക്കുക കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സുവത്തിന് നെയ്യാ ട്ടത്തോടെ നാളെ തുടക്കമാവും ജില്ലയിലെ വിവിധ് മഠങ്ങളിൽ നിന്ന് നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് പൂറപ്പെട്ടു് കാൽനടയാ യാണ് സംഘങ്ങൾ കൊട്ടിയൂരിലെത്തുകൃ വയ്നാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് വാൾ എഴുന്നള്ളത്തും നാളെയാണ്

വൈശാഖോത്സവത്തിനെ ത്തുന്ന ഭക്തജനങ്ങൾക്കായി കൊട്ടിയൂർ പെരുമാൾ സേവാസംഘ ത്തിന്റെ നേതൃത്വത്തിൽ വിപൂല്മായ സൌകര്യം ഒരുക്കിയതായി സംഘം ഭാരവാഹികൾ അറിയിച്ചു

ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര അക്കാ ദമി ബാലസ്ാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ശിശുക്ഷേമസമിതി എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രോത്സവം നടത്തുന്നത് ഇതിന്റെ ലോഗോ പ്രകാശനം ചലച്ചിത്ര നടൻ പ്രകാശൻ ചെങ്ങൽ നിർവഹി ച്ചു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ശബരിമല മാളി കപ്പുറത്ത് നവീകരണ പ്രവൃത്തികൾ ചെയ്യാനാവില്ലെന്ന് തിരുവി താംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പദ്മകുമാർ അറിയിച്ചു ദേവസ്വം മരാമത്തിന്റെ നിർദേശവും വാസ്തുവും പരിഗണിച്ചാവും ശബരിമല മാസ്റ്റർപ്പാൻ നടപ്പാക്കുകയെന്നും അദ്ദേഹം ശബരിമല യിൽ പറഞ്ഞു ശബരിമലയിൽ തീർത്ഥാടകരുടെ ബാഗുകൾ കീറി മോഷണം നടത്തിവന്ന തമിഴ്നാട് തേനി സ്വദേശികളായ മൂന്നുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ റാന്നി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എറണാകുളം മുനമ്പത്ത് മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് വീണ് മത്സ്യതൊഴിലാളിയെ കാണാതായി ആലപ്പുഴ പുരക്കാട് സ്വദേശി സുനീന്ദ്രൻ എന്ന ആളെയാണ് കാണാതായത് ഇയാൾക്കായി തിര ച്ചിൽ തുടരുകയാണ് വയനാട്ടിൽ ആരംഭിച്ച തൊവരിമല ഭൂസമരസമിതി സമരം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു

സ്മിതി സമരസംഗമം സംഘടിപ്പിക്കും

പുതുതായി സജ്ജീകരിച്ച ചിൽഡ്രൻസ് പാർക്കും സന്ദർശകർക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട്